ബ്യൂണസ് ഐറിസിൽ ഉച്ചകോടിയുടെ സമാപന ചടങ്ങിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചത്

ഉച്ചകോടി ഇറ്റ ലിയായിരുന്നു നടക്കേണ്ടിയിരുന്നത് ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വൃവസ്ഥയാണ് ഇന്തൃയിലേതെന്ന് പ്രധാനമന്ത്രി ഉച്ച കോടിയിൽ പറഞ്ഞു വൈവിധ്യമാർന്ന ചരിത്രത്തി ന്റെയും സംസ്കാരത്തിന്റെയും അനുഭവം അറിയാൻ ലോക രാഷ്ട്രങ്ങളെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു

ഇന്നലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചുചേർത്ത നവോത്ഥാന സംഘടനക ളുടെ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാ പ്പളി നടേശൻ ചെയർമാനായും കെ പി എം എസ് ജന റൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ കൺവീനറുമായി രൂപീകരിച്ച നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയാ യിരിക്കും വനിതാമതിൽ സംഘടിപ്പിക്കുന്നത് കേര ളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യത്തോടെയാണ് വനിതാമതിൽ രൂപീ കരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എൻ എസ് എസ് യോഗത്തിൽ പങ്കെടുക്കേണ്ടതാ യിരുന്നുവെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു

തോമസ് ഐസക് കടകംപള്ളി സുരേന്ദ്രൻ പി തിലോത്തമൻ എന്നിവരെ ബിജെപി മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ തടയുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു കെ സുരേന്ദ്രനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് കള്ളക്കേസിൽ കുടുക്കുന്നതെന്നും മനുഷ്യാവകാശ ലംഘനമാണ് ഇതെന്നും ആരോപിച്ചാണ് സമരം ശബരിമലയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും പൊലീസ് അതി ക്രമങ്ങൾക്കുമെതിരെ നാളെ മുതൽ തിരുവനന്തപുരത്ത് ബിജെപി അനിശ്ചിതകാല നിരാഹാര സമരവും സംഘടിപ്പിച്ചിട്ടുണ്ട്

ശബരിമല സമരം നേതാക്കൾക്കെതിരെയുണ്ടായ പൊലീസ് നടപടികൾ തുടങ്ങിയ വിഷയങ്ങൾ രണ്ട് ദിവസങ്ങളിലായി സംഘം പരിശോധിക്കും രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ സംഘത്തിന് നിർദ്ദേശം നല്കിയിരുന്നു പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി സരോജ് പാണ്ഡെ പ്രഭാത് ജോഷി വിനോദ്സോം കാർ നളീൻ കുമാർ കട്ടീൽ എന്നിവർ സംഘത്തിലുണ്ട് ശബരിമലയിൽ നടപടികൾ നേരിട്ടവരിൽ നിന്ന് പരാതി സ്വീകരിക്കുന്ന സംഘം ഗവർണറുമായി കൂടിക്കാഴ്ചയും നടത്തും ജയിലിൽ കഴിയുന്ന കെ സുരേന്ദ്രനെ സംഘാംഗങ്ങൾ നാളെ സന്ദർശിക്കും

ബി ജെ പി യിലെ അഭിപ്രായ വൃത്യാസം മാധ്യമസൃഷ്ടി മാത്രമാണെന്നും കുപ്രച രണങ്ങളിൽ കുടുങ്ങരു തെന്നും പ്രശീധ രൻപിള്ള പറഞ്ഞു കെ ടി ജയകൃഷ്ണൻ ബലിദാന ദിനസമ്മേ ളനം കണ്ണൂർ ശ്രീകണ്ഠ പുരത്ത് ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു അദ്ദേഹം കെ സുരേന്ദ്രനെതിരായ നടപടി നിയമവിരുദ്ധമാണെന്നും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ പ്രതിയാക്കി ബി ജെ പി കേസ് നടത്തുമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു ഗുജറാത്തിലെ കലാപ കേസുകളിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെയും ആഭ്യന്തര മന്ത്രിയായിരുന്ന അമിത്ഷായെയും വെള്ളപൂശി റിപ്പോർട്ട് നൽകിയതിന് പ്രത്യുപകാരമെന്ന നില യ്ക്കാണ് ലോകനാഥ് ബെഹ്റയെ സംസ്ഥാന ഡി ജി പിയാക്കിയതെന്ന് കെ പി സി സി പ്രസിഡണ്ട് മുല്ല പ്പള്ളി രാമചന്ദ്രൻ ആവർത്തിച്ചു മുഖ്യമന്ത്രിസ്ഥാന മേറ്റശേഷം നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ് നടത്തി തിരിച്ചെത്തിയ ഉടനെയാണ് ബെഹ്റയെ ഡി ജി പിയായി നിയമിച്ചതെന്നും ഇത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേ ശ പ്ര കാ ര മാ യി രു ന്നു വെന്നും മുല്ല പ്പളളി കണ്ണൂരിൽ പറഞ്ഞു മോദിക്കും പിണറായിക്കും ഇടയിൽ ബെഹ്റ പാലമായി പ്രവർത്തിക്കുകയാ ണെന്നും അദ്ദേഹം ആരോപിച്ചു വെള്ളിയാഴ്ച യൂത്ത്ലീഗ് യുവജനയാത്രയുടെ സ്വീകരണസമ്മേളന ത്തിൽ വടകരയിലും മുല്ലപ്പളളി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു

ശേഷിച്ചവ അടുത്ത വർഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തു മെന്ന് അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് അരിക്കുളത്ത് പ്രാഥമികാരോഗ്യകേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്ര മാക്കി ഉയർത്തുന്ന ചടങ്ങിൽ സംസാരിക്കുകയായി രുന്നു മന്ത്രി ആശുപത്രിയുടെ പുതിയ കെട്ടിടവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു

പ്രളയത്തെ തുടർന്ന് അധിക വരുമാനം കണ്ടെത്താൻ വർദ്ധിപ്പിച്ച നിരക്ക് പഴയ നിലയിലേക്ക് കുറച്ചതായി ബിവറേജസ് കോർപ റേഷൻ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു നിരക്ക് കുറവ് ഇന്നലെ പ്രാബലൃത്തിൽ വന്നു

സി പൂൾ ജേതാക്കളെ നിശ്ചയിക്കുന്ന മത്സരം നിർണായകമാണ് ഗ്രൂപ്പ് ജേതാക്കൾ നേരിട്ട് കാർട്ടർ ഫൈനലിൽ കടക്കും

ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്തിന്റെ ആവേശവുമായാണ് ഇന്ത്യ ഇറങ്ങുന്നത്

കെയെ നേരിടും വൈകീട്ട് ഏഴരക്ക് ചെന്നെയിലാണ് മത്സരം

അക്കാദമിക്ക് സമീപം എട്ടിക്കുളം കടലിലെ മത്സരം വെള്ളിയാഴ്ച വരെ തുടരും

നാളെ കേരളം ബംഗാളിനെ നേരിടും

കേരളത്തിന്റെ പുനർ നിർമ്മാണത്തിന് എന്ന സന്ദേശത്തോടെയാണ് ഇത്തവണത്തെ മാരത്തൺ സംഘടിപ്പിക്കുന്നത് മാരത്തണിന് ലഭിച്ച രജിസ്ട്രേഷൻ ഫീസ് ഈ വർഷം മുഖൃമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് കൈമാറും വിജയികൾക്ക് ഇന്ന് രാവിലെ മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്യും

കൊല്ലത്ത് കുടുംബശ്രീ സ്കൂൾ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ കുരീപ്പുഴ ശ്രീകുമാറിന്റെ കുടുംബശ്രീ ഗീതം മന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു എയ്ഡ്സ് ബാധിതരോട് സമൂഹം ജീവകാരുണ്യ പരമായ സമീപം പുലർത്തണമെന്ന് മന്ത്രി എം എം മണി ആവശ്യപ്പെട്ടു ഇടുക്കി കട്ടപ്പനയിൽ ജില്ലാതല എയ്ഡ്സ് ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി എയ്ഡ്സ് ദിനാചരണ മത്സരങ്ങളിലെ വിജയികൾക്ക് മന്ത്രി സമ്മാനങ്ങളും വിതരണം ചെയ്തു

ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

ഈ മാസം ഏഴ് മുതൽ ഒൻപത് വരെയാണ് കലോത്സവം

ഇത് കുമളിയിലെ വ്യാപാര മേഖലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്

ഉദ്ഘാടന ദിവസമായ ഡിസംബർ ഒൻപതിന് രാവിലെ ആറ് മുതൽ വൈകീട്ട് മൂന്ന് വരെ ഇരുചക്ര വാഹനങ്ങ ളുൾപ്പെടെ പ്രത്യേക പാസില്ലാത്ത ഒരു വാഹനവും വിമാനത്താവളത്തിലേക്ക് കടത്തിവിടേണ്ടതില്ലെന്ന് ജില്ലാകലക്ടർ വിളിച്ചുചേർത്ത യോഗത്തിൽ തീരുമാ നമായി

പത്തിൽ അഞ്ച് ജനറൽ സീറ്റും നാല് ജില്ലാ നിർവാഹക സമിതി സ്ഥാനവും അടക്കം ഒൻപത് സീറ്റും നേടിയാണ് എസ് എഫ് ഐ യുടെ വിജയം

ലലലലലലലലലലലല കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് നാളെ സംസ്ഥാനത്തെ എല്ലാ റെയിൽവെ സ്റ്റേഷനുകളിലും സമാധാനപരമായ ധർണ്ണ നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡണ്ട് കെ ജെ വർഗീസ് അറിയിച്ചു കെ എഫ് ബി തിരുവനന്തപുരം ജില്ലാകമ്മറ്റിയുടെ വാർഷിക സമ്മേളനം ഇന്ന് കെ എഫ് ബി ഹെഡ്കാർട്ടേഴ്സിൽ ചേരും